സാമൂഹ്യ തിന്മകൾക്കെതി രെയുള്ള പോരാട്ടത്തിൽ താനൊറ്റയ്ക്കല്ലെന്നും ക്യാമ്പൈയിനെ പിന്തുണയ്ക്കുന്നവരെല്ലം മേം ഭി ചൌക്കിദാർ പ്രതിജ്ഞ എടുക്ക ണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഉത്തർപ്രദേശിലെ നാഗിന ബാഗ് പേട്ട് എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പൊതു സമ്മേളനങ്ങളിൽ ബി ജെ

ആന്ധ്രാപേദശിലെ അനന്ത്പൂർ ജില്ലയിലാണ് ഇന്ന് കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പൊതു പരിപാടിയിൽ പങ്കെടുക്കുന്ന ത് ബംഗളൂരുവിൽ തിരഞ്ഞെടുപ്പ് റാലിയെ ശ്രീ രാഹുൽഗാന്ധി അഭിസംബോധന ചെയ്യുന്നുണ്ട്

പിയിലെ അമേഠിയ്ക്കുപുറമേ വയനാട് ലോക്സഭാ സീറ്റിൽ നിന്നും മത്സരിക്കും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ

ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും നിരന്തരമായ അഭ്യർത്ഥന പ്രകാരമാണ് തീരുമാനമെന്ന് ശ്രീ

പ്രാദേശിക റേഡിയോ നിലയങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ ഇതുസംബന്ധിച്ച് ഇന്നലെ പരിശീലനം സംഘടിപ്പിച്ചിരുന്നു രാജ്യത്തെ ഏറ്റവും അവസാന വോട്ടറിലേക്കും എത്തിച്ചേരാൻ കഴിയുന്ന മാധ്യമമാണ് പ്രാദേശിക റേഡിയോ എന്ന് മുതിർന്ന ഉപ തെരഞ്ഞെടുപ്പ് കമ്മീണർ ഉമേഷ് സിൻഹ പറഞ്ഞു ഓരോ സ്ഥലത്തെയും പ്രാദേശിക ഭാഷയിൽ വസ്തുതക ജനങ്ങളിൽ എത്തിച്ച് രാജ്യത്തെ ജനാധിപത്യം ശക്തി പ്പെടുത്തുന്നതിന് പ്രാദേശിക റേഡിയോകൾക്ക് പ്രധാന പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു

വോട്ടെടു പ്പിനായി വിന്യസിച്ച കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൽ ദുബെ വിലയിരുത്തുമെന്ന് സംസ്ഥാന അഡീഷണൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സൻജോയ് ബസു പറഞ്ഞു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും കൊൽക്കത്തയിലെ സുരക്ഷസേന ഉദ്യോഗസ്ഥരെയും അദ്ദേഹം സന്ദർശിക്കും

ന്യൂഡൽഹിയിൽ ഒരു സ്വകാര്യ ടി വി ചാനൽ നട ത്തിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഇന്ത്യയോടുള്ള ആഗോള നില പാടുകൾക്ക് വളരെ മാറ്റങ്ങൾ ഉണ്ടായതായും ശ്രീ മോദി പറഞ്ഞു കാലാവസ്ഥാ വൃതിയാനം മിസൈൽ സാങ്കേതിക വിദ്യ സാമ്പ ത്തിക കുറ്റവാളിക്കുമേലുള്ള സമീപനം തീവ്രവാദം എന്നീ മേഖല കളിൽ ആഗോളതലത്തിൽ നിയമങ്ങൾ കെട്ടിപ്പെടുക്കാൻ ന്യൂഡൽഹി ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീവ്രവാദ സംഘടനകൾക്ക് എതിരെ ഇൻഡ്യ സ്വീകരിക്കുന്ന നടപടികൾക്ക് ലോകത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭി ക്കുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു പാക്കിസ്ഥാന്റെ ഇന്ത്യാ വിരുദ്ധ പ്രചരണങ്ങൾ നടത്തിയ വേദികളിലെല്ലാം ഇപ്പോൾ ഇന്ത്യ യുടെ ശബ്ദമാണ് മാറ്റൊലി കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

നൌഷേരാ സെക്ടറിൽ പാക് സൈന്യം മോട്ടാർ ഷെല്ലിംഗും വെടിവയ്പും നടത്തിയതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു

പ്രജ്ജ്നില്ല പൂഞ്ച് ജില്ലയിലെ മാൻകോട്ടിലും കൃഷ്ണഗട്ടിയിലു് പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ ഒരു പ്രദേശ്രപ്പാസിക്ക് പരിക്കേറ്റിരുന്നു

ദർഹാൽ പ്രദേശത്തെ ഉച്ചൻ ദന്ത്കോട്ടയിലെ വളവ് തിരിയുന്നതിനിടെ ഡ്രൈവർക്ക് വാഹന നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടകാരണമെന്ന് പോലീസ് പറഞ്ഞു

പോലീസും ഡോക്ടർമാർ അടങ്ങുന്ന സംഘവും രക്ഷാപ്രവർത്തനത്തിന് എത്തി നാല് പേർ സംഭവസ്ഥലത്തുതന്നെ മരിച്ചു മൂന്ന് പേരെ ഗുരുതരമായ പരിക്കുകളോടെ കണ്ടെത്തുകയായിരുന്നു രണ്ടുപേർ ദർഹാൽ സാമൂഹ്യ ആരോഗ്യകേന്ദ്രത്തിലുമാണ് മരണപ്പെട്ടത്

ആളപായമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് റെയിൽവേ പി

ഒ

ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തൂടർന്ന് ഡ്രൈവർ എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ചത്യാണ് ബോഗികൾ പാളംതെറ്റാൻ കാരണമായത് റെയിൽപ്പ് ഓഫീസർമാർ സംഭവസ്ഥലത്തെത്തി ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്

സാൻഡിയാഗോ വിമാനത്താവളത്തിൽ ചിലിയിലെ സ്ഥാനപതിമാരും ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന് ഗംഭീര സ്വീകരണമാണ് നൽകിയത് സന്ദർശന വേളയിൽ അദ്ദേഹം ചിലി പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും തുടർന്ന് ശ്രീ കോവിന്ദ് ചിലിയിലെ ഇന്ത്യൻ സമൂഹവുമായി ആശയവിനിമയം നടത്തും

ക്രൊയേഷ്യ ബൊളീവിയ ചിലി തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ ഏപ്രിൽ നാലാം തീയതിവരെയാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം

ദുബായിയിൽ നിന്നും ഈ വർഷം ജനുവരിയിൽ ന്ട്ടുകടത്തപ്പെട്ട തൽവാറിനെ അന്വേഷണ ഏജൻസി അറസ്റ്റ് പ്രെയ്യുകയായിരുന്നു ഇയാൾ ഇപ്പോൾ വിവിധ എയർലൈനുകൾക്കായി ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും വഴിവിട്ട് സ്വാധീനിച്ച് അവിഹിതമായി കാര്യങ്ങൾ നേടിക്കൊടുത്തുവെന്നുമാണ് ഇയാൾക്കെതിരെയുള്ള കേസ്

ഓരോ ഗ്രാമത്തിലെയും ആകെ വീടുകൾക്ക് ആനുപാതികമായ എണ്ണം വീടുകളിൽ സർവ്വെ നടത്തിയിട്ടുണ്ട് സർവ്വെയ്ക്കായി സ്വീകരിച്ച മാർഗ്ഗങ്ങളും രീതികളും ശുചിത്വ വകുപ്പിലെയും സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ടുമെന്റിലേയും വിദഗ്ധ സംഘം അംഗീകരിച്ചതാണെന്ന് കേന്ദ്രു ശുചിത്വ മന്ത്രാലയം വ്യക്തമാക്കി

ജനസംഖ്യാ ആനുപാതികമായല്ലാതെ മുൻവിധിയോടെ നടത്തിയ ചില സർവ്വെകൾ ചൂണ്ടിക്കാട്ടി ്മാധ്യമങ്ങൾ കേന്ദ്ര മന്ത്രാലയത്തിന്റെ സർവ്വെയെ വിമർശിക്കുകയാണെന്നും ശുചിത്വ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറീയിച്ചു ഗ്രാമീണമേഖലയിൽ ശുചിമുറികൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ച മാധ്യമ വാർത്തകളെ തുടർന്നായിരുന്നു മന്ത്രാലയത്തിന്റെ വിശദീകരണം ന്യൂസ് ഡെസ്ക് ആകാശവാണി

ടാങ്കുകൾ സൈന്യങ്ങൾ ആയുധങ്ങൾ വാഹനങ്ങൾ എന്നിവയുടെ ഗതാഗതം സാദ്ധ്യമാക്കുന്നതിനും കരയിലും വെള്ളത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്കും ഇത് ഉപയോഗിക്കാനാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഈ കപ്പൽ നിലവിലുള്ളത്

ഇരുരാജ്യങ്ങളുടെയും പരസ്പര സൌഹാർദ്ദത്തിന്റെ പ്രിതിഫ്ലനമാണ് ഈ പരിശീലനം ഇത് മേഖലയിൽ സമ്പ്യാന്നം സ്ഥാപിക്കുമെന്നും കൂട്ടായ നന്മയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ആയിരം വർഷത്തോളം പഴക്കമുള്ള ബന്ധമാണ് ഇന്തൃയും ശ്രീലങ്കയും പങ്കുവയ്ക്കുന്നതെന്നും മഹേഷ് സേനാ നായകെ പറഞ്ഞു

ന്യൂഡൽഹി കെ

എല്ലിൽ ഇന്നലെ സൂപ്പർ ഓവറോളം നീണ്ട പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഡൽഹി ക്യാപി റ്റൽസിന് ജയം

ഇതോടെയാണ് വിജയിക്കള്ള് നിശ്ചയിക്കാൻ സൂപ്പർ ഓവർ വേണ്ടി വന്നത് ഇന്ന് രണ്ട് മത്സരങ്ങൾ നടക്കും വൈകിട്ട് നാലിന് സൺറൈ സേഴ്സ് ഹൈദ്രാബാദൂം പ്രദ്ധായൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഹൈദ്രാബാദിൽ ഏറ്റുമുട്ടു് രാത്രി എട്ടിന് ചെന്നൈയിൽ രാജ സ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും